നാലാം വ്യാവസായിക വിപ്പവം രാജ്യത്ത് വികസനത്തിന്റെ പൂതിയ വാതായനം തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഒഡീഷ ആന്ധാപ്രദേശ് തീരമേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉൌർജ്ജിതം

രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി പാരീസിൽ എത്തിച്ചേർന്നു

ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള രണ്ടാമത്തേതും അവസാനത്തേതുമായുള്ള ടെസ്റ്റ് മത്സരം നാളെ ഹൈദരാബാദിൽ

വിപ്ലവകേന്ദ്രത്തിന്റെ കൃഷ്ണാടനം നിർവ്വഹിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്ത് വികസനത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ ഇതിനു കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായകരമായ ഫലപ്രദമായ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജൃത്തെ നാലാം വ്യാവസായിക വിപ്ലവത്തിന് സജ്ജമാക്കാൻ എൻ ഡി എ ഗവൺമെന്റ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ന് പൂലർച്ചെ ഒഡീഷ തീരത്തെത്തിയ തിത്ത്ലി ചുഴലിക്കാറ്റ് വലിയ നാശമാണ് സംസ്ഥാനങ്ങളിൽ വിതച്ചത് അതി തീവ്ര ചുഴലിക്കാറ്റായി മാറിയ തിത്ത്ലി ആന്ധ്ര തീരത്തും വൻനാശനഷ്ടം വിതച്ചു ഏഴ് പേരുടെ ജീവൻ കവർന്നു വിശദാംശങ്ങളുമായി രജ്ഞിത്ത്

മീ

ഒഡീഷയുടെ രായഗധ ഗഞ്ചം ഗജപതി ജില്ലകളിലെ ജനജീവിതത്തെ ചുഴലിക്കാറ്റ് ബാധിച്ചു ഇവിടുത്തെ വൈദ്യുതി ടെലിഫോൺ ബന്ധങ്ങൾ തകരാറിലായി ജില്ലാഭരണകൂടം ദുരന്ത പ്രതികരണ സേനയുടെയും അഗ്നിരക്ഷാ സേനയുടെയും സഹായത്തോടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്

കരസേന നാവികസേന കോസ്റ്റ്ഗാർജ് എന്നിവ ഏതു സാഹചര്യത്തേയും നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞതായി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികും അറിയിച്ചു രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് ഒഡീഷ മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിലൂടെ അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

വ്യക്തിസ്വാതന്ത്രവും യശസ്സും മുറുകെ പിടിക്കാൻ സന്ധിയില്ലാ സമരങ്ങൾക്ക് ഇന്ത്യൻ ജനതയെ ഉത്തേജിപ്പിച്ചു മുഷ്ഠാനായ വൃക്തിയായിരുന്നു ജയപ്രകാശ് നാരായണനെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു ഭാരത്തിന്റെ ജനാധിപത്യ അടിത്തറ കാത്തുസൂക്ഷിക്കുന്നതിൽ ജയപ്രകാശിന്റെ സംഭാവനകൾ നിസ്തുലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗ്രാമീണ ജനങ്ങളുടെ ഉന്നമനത്തിനും കർഷകരുടെ ക്ഷേമത്തിനും ജയപ്രകാശ് നാരായണൻ അക്ഷീണം പ്രയത്നിച്ചതായും പ്രധാനമന്ത്രി ഓർമ്മിച്ചു

എക്സ് മീഡിയ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി അതേ സമയം മാധ്യമ ശ്രദ്ധ നേടുന്നതിനാണ് ഈ നടപടിയെന്നും ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും കാർത്തി ചിദംബരം പ്രതികരിച്ചു

പൂജാ കമ്മിറ്റികൾക്ക് സഹായധനം നൽകാനുള്ള മമതാ ബാനർജി ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ കൽക്കട്ട ഹൈക്കോടതി വിസമ്മതിച്ച കാര്യം ചീഫ് ജസ്റ്റിസ് രജ്ജൻ ഗോഗോയിയെ നോട്ടീസ് മുഖേന അറിയിച്ചതിനെ തുടർന്നാണ് സുപ്രീംകോടതി വിഷയത്തിൽ വാദം കേൾക്കാൻ സമ്മതിച്ചത്

സുഷമ സ്വരാജ് ഈ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും കൂടാതെ ഇന്തൃൻ വംശജരുമായി ആശയവിനിമയം നടത്തും അഫ്ഗാനിസ്ഥാൻ ബെ ലാറസ് മംഗോളിയ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ കൂടി സഹകരണം ഉറപ്പിച്ചു കൊണ്ട് വികസന വഴി യിൽ മുന്നേറാൻ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണിത്

ചെന്നൈയിൽ തമിഴ് ച്ചംബർ ഓഫ് കോമേഴ്സിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

തുടർച്ചയായി നുണകൾ പറഞ്ഞ് രാഹുൽഗാന്ധി ദേശീയ രാഷ്ട്രീയത്തെയും ദേശീയ ഐക്യത്തെയും കളിയാക്കുകയാണെന്ന് ബിജെപി വക്താവ് സാംബിത് പത്ര മാധ്യമങ്ങളോട് പറഞ്ഞു

ഇരു രാജൃങ്ങളും തമ്മിൽ പ്രതിരോധവും സുരക്ഷയും കൂട്ടുത്തൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ഫ്രഞ്ച് പ്രിതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലിയുമായി ശ്രീമതി നിർമ്മല്ലി സ്ീതാരാമൻ കൂടിക്കാഴ്ച നട ത്തും ഇരു രാജ്യങ്ങൾക്കും താൽ ്പര്യമുളള ആഗോള വിഷയങ്ങൾ ചർച്ചാവിഷയമാകും

ഇതിനായി ഡൽഹി ഗവൺമെന്റ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ മാതൃകയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സിഖ് സംഘടനകൾ നൽകിയ നിവേദനം പരിഗണിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗാണ് നിർദ്ദേശം നൽകിയത്

ഇതിനായി നടത്തിയ പരിശീലന പരിപാടിയുടെ സമാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മനുഷ്യ നിർമ്മിതവും പ്രകൃതി ദത്തവുമായ അത്യാഹിതങ്ങൾക്ക് പരിഹാരമായി സ്ഥിരം സംവിധാനം ആവശ്യമാണ്

കൊല്ലപ്പെട്ട ഒരു തീവ്രവാദി ഹിസ്ബുൾ മുജാഹിദ് കമാൻഡർ എം

നാൻവാണി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ തീവ്രവാദിയെ തിരിച്ചറിയാൻ ശ്രമം തുടരുന്നു

അന്താരാഷ്ട്ര നിരീക്ഷകരുടെ സുപ്രധാനമായ ഒരു ആവശ്യമാണ് ഇതോടെ നടപ്പാക്കിയിരിക്കുന്നത്

ഇതിനായി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ഉമേഷ് ഖാൻവിൽക്കറും മറ്റൊരംഗവും ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്

അഖിലഭാരത കേരള ഘടകമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി നല്കിയത് ശബരിമല വിഷയവുമായി ഇത് താരതമ്യം ചെയ്യുവാൻ ആകില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ത്രീം വനിത പോലും പരാതി നല്കിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു

സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനത്തിനായി ടൂറിസം വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്കാണ് കേന്ദ്രം തത്വത്തിൽ അംഗീകാരം നൽകിയത് വിശദമായ പദ്ധതിരേഖ ഉടൻ തയാറാക്കി സമർപ്പിക്കുമെന്ന് മന്ത്രി ശ്രീ

ഏഴ് ക്ലസ്റ്ററുകളായി തിരിച്ച് ജില്ലകളിലെ പ്രധാനപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തീർഥാടന കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൌകര്യ വികസിപ്പിക്കും